തമായി നൽകാൻ ഗവൺമെന്റ് ശ്രമിച്ചുവരിക്യാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതു പകർച്ചവൃാധിയും നേരിടാൻ കേരളം സജ്ജമാണെന്ന് മന്ത്രി കെ

സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം വയനാട്ടിൽ ഇന്ന് സമാ

സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ സമ യബന്ധിതമായി നൽകാൻ ഗവൺമെന്റ് ശ്രമിച്ചുവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് രജിസ്ട്രേഷൻ ഓഫീ സുകളുടെ പ്രവർത്തനവും നിർമ്മാണവും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഒരുലക്ഷം രൂപയിൽ കുറഞ്ഞ രജിസ്ട്രേഷനുകൾക്കും ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്താൻ ഗവൺമെന്റ് നട പടിയെടുത്തുവരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ രജിസ്ട്രേഷൻ ഓഫീ സുകൾക്കും ഐ എസ് ഒ ഗുണനിലവാരം നേടാൻ നടപടികൾ പുരോഗമി ക്കുകയാണ് ചടങ്ങിൽ മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായിരുന്നു ് ഏത് പകർച്ചവ്യാധിയും നേരിടാൻ കേരളം ഇന്ന് സജ്ജമാണെന്ന് മന്ത്രി കെ

ശിശുമരണ നിരക്കും മാതൃ മരണ നിരക്കും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ തോതിലെത്തിക്കാൻ സംസ്ഥാന ത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ശ്രമ ങ്ങൾക്കൊപ്പം പൊതുജനങ്ങളുടെയും സഹകരണം കൊണ്ടാണ് ഈ ലക്ഷ്യ ത്തിലെത്താൻ കഴിഞ്ഞതെന്ന് അവർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ തിരുവമ്പാടി പുതുപ്പാടി ഗ്രാമപഞ്ചായത്തുകളിൽ കുടും ബാരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൌരത്വ നിയമ ഭേദഗതിക്കും കേന്ദ്ര ഗവൺമെന്റിനുമെതിരെ കോൺഗ്രസും സി പി ഐ എമ്മും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാ ണെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി മുർളീധർ റാവു കുറ്റപ്പെടു ത്തി പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഒരു പൌരനും പുറത്തുപോ കേണ്ടി വരില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ബി ജെ പി കോഴി ക്കോട് ജില്ലാ പ്രസിഡന്റ് വി

സജീവൻ നയിച്ച ഏകതായാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധര റാവു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേഷ് മുഖ്യപ്രഭാഷണം നട ത്തി മുൻ മന്ത്രി വി

ശിവകുമാറിനും മൂന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കുമെതിരെ വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ എഫ് ഐ ആർ സമർപ്പിച്ചു

പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി വി

ഇബ്രാഹിംകുഞ്ഞിനെതിരായ അന്വേഷണ പുരോഗതി മാർച്ച് മൂന്നി നകം അറിയിക്കാൻ ഹൈക്കോടതി വിജിലൻസിനും എൻഫോഴ്സ്മെന റിനും നിർദ്ദേശം നൽകി കേസിൽ ഇബ്രാഹിംകുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ശ്രീരാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും

് കൊറോണ സംശയത്തെ തുടർന്ന് ആലപ്പുഴയിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൈനയിൽ നിന്നും വന്ന് ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്നയാളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്

ആശുപത്രികളിലെ ഐസൊലേ ഷൻ വാർഡുകളിൽ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല

ഇന്നലെ എഴുപേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി

നിരീക്ഷണ കാലയളവ് അവ സാനിച്ച ഒരാളെക്കൂടി പട്ടികയിൽനിന്ന് ഒഴിവാക്കി

കഴിഞ്ഞ അഞ്ചുവർഷവും പദ്ധതി വഴി കാർഷിക ഉൽപാദനം വർദ്ധി ച്ചതായി കേന്ദ്ര കൃഷി സെക്രട്ടറി സഞ്ജയ് അഗർവാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയി ച്ചു ഇന്നലെ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടു സമരം നേരി ടാൻ ഗവൺമെന്റ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്

് സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം വയനാട്ടിൽ ഇന്ന് സമാപിക്കും വൈത്തിരി റിസോർട്ടിൽ മന്ത്രി എ

മൊയ്തീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്വരാജ് മഹാത്മാ ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രതിനിധികളുടെ സമ്മേളനം രാവിലെ ആരം ഭിക്കും പ്രവാസി മലയാളികൾക്ക് ഗൾഫ് യാത്രാ നിരക്കിൽ ഇളവ് നൽകാൻ നോർക്ക പദ്ധതി ആവിഷ്കരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നോർക്ക ഇതുസംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചു കൂടുതൽ വിവരങ്ങളുമായി ജി

അമിതയാത്രാ നിരക്കുമൂലം ബുദ്ധിമുട്ടുന്ന ഗൾഫ് മേഖലയിലെ പ്രവാസികളെ സഹായിക്കാൻ നോർക്ക റൂട്ട്സ് കുവൈറ്റ് എയർവെയ്സു മായി ധാരണാപത്രം ഒപ്പുവെച്ചു

ഒമാൻ എയർവേസിലും വൈകാതെ നോർക്കാഫെ യർ ഏർപ്പെടുത്താൻ നടപടിയെടുത്തു വരികയാണ് ന് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വേമ്പനാട്ടുകായൽ പ്ലാസ്റ്റിക് മുക്തമാക്കുമെന്ന് മന്ത്രി പി

ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികളെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോഗ്യ ജാഗ്രതാ കർമ്മ പദ്ധതി കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

കോഴിക്കോട്ട് വൈദ്യുതി അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പുരുഷ ടീം അസ്സമിനേയും വനിത കൾ ബംഗാളിനെയുമാണ് തോൽപിച്ചത്

കലോത്സവം മന്ത്രി കെ

ഐ ടി ഐ കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവരുമെന്ന് മന്ത്രി ടി

അഞ്ച് പുതിയ ഐ ടി ഐകൾ തുടങ്ങാൻ നടപടിയെടുത്തുവരികയാ ണെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു

കയർപിരി മേഖലയിലെ പീസ് റേറ്റ് കൂലി സമ്പ്രദായം നിർത്ത ലാക്കി മാസ ശമ്പളം നടപ്പാക്കുമെന്ന് മന്ത്രി ിഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു

ആലപ്പുഴയിൽ കുതിച്ചുയരുന്ന കയർ വ്യവസായം പ്രഖ്യാപനവും സഹകരണ സംഘ ങ്ങൾക്ക് യന്ത്ര വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി

റോഡരികിൽ മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകളെ സഹായിക്കാൻ ആധുനിക സ്റ്റാളുകൾ നിർമ്മിച്ചുനൽകുമെന്നും മന്ത്രി അറിയിച്ചു കൊച്ചം ബീച്ച് പരിസരത്ത് മത്സ്യഫെഡ് ആരംഭിച്ച ഫിഷ്മാർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കേസിൽ അമ്മ ശരണ്യയെ അറസ്റ്റ് ചെയ്തു കൊലപാതകം ഭർത്താവിൽ ആരോപിച്ച് കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു ഉദ്ദേശ്യമെന്ന് ശരണ്യ മൊഴി നൽകി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

മൂന്നാറിലെ ലക്ഷ്മി കോളനി അടിമാലി റോഡ് പുനർ നിർമ്മാ ണത്തിന്റെ ഫണ്ട് വകമാറ്റി എന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു

നാലാഴ്ച യ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്കും പള്ളിവാ ട സൽ പഞ്ചായത്ത് പ്രസിഡന്റിനും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചി നീയർക്കും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് നിർദ്ദേശം നൽകി

മാനന്തവാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ബാബു അലക്സാണ്ടറെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് സർവ്വീസിൽ നിന്നും പിരിച്ചുവിട്ടു

സുനിൽകുമാർ അറിയിച്ചു

കൊച്ചി മെട്രോയുടെ അനുബന്ധ സർവീസായി ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി ബസ് സർവീസ് നാളെ ആരംഭിക്കും

ഇടുക്കി ജില്ലയിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന സ്വത്ത് തർക്ക പരാ തികൾ വർദ്ധിച്ചുവരുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം

ജോസഫൈൻ പറഞ്ഞു കുടിയേറ്റ ജില്ലയായതിനാൽ പലർക്കും ഭൂസ്വത്ത് കൂടുതലുണ്ട് മക്കളുടെ സ്വത്ത് തർക്കത്തിൽ വലയുന്നത് മാതാ പിതാക്കളാണെന്നും ജോസഫൈൻ പറഞ്ഞു കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മെഗാഅദാലത്തിനനുശേഷം സംസാരിക്കുകയായിരുന്നു അവർ

അപകടങ്ങൾ പതിയിരിക്കുന്ന ചുറ്റുപാടിനെകുറിച്ച് വിദ്യാർഥികളിൽ അവബോധം ഉണ്ടാക്കാൻ സ്കൂൾതലം മുതൽ വിദ്യാർഥികൾക്ക് ബോധവൽക്കരണവും ലൈംഗിക വിദ്യാഭ്യാസവും നൽകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ വനിത കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ

കേരള വനിതാ കമ്മീഷൻ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടത്താനി രുന്ന മെഗാ അദാലത്ത് മാറ്റി